ജമ്മുകശ്മീരിൽ സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്നു ഹിസ്ബുൾ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഗുജറാത്ത് പര്യടനത്തിന് തുടക്കം

ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ സ്ഥാനമൊഴിഞ്ഞു റെനിൽ വിക്രമസിൻഗെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും

സംസ്ഥാനതലസ്ഥാനമായ ഐസാളിലെ രാജ്ഭവനിൽ അൽപം മുമ്പ് നടന്ന ചടങ്ങിൽ ഗവർണർ കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാ വാചകം മൂന്നാംതവണയാണ് സോറാം ചൊല്ലികൊടുത്തു

മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി മുതിർന്നു ക്കോൺഗ്രസ് നേതാവ് കമൽനാഥ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഭോപ്പാലിലെ ലാൽ പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു

എ മാരുടെ പിന്തുണയോടെയാണ് കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറുന്നത് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട് മുഖ്യമന്ത്രിയും സച്ചിൻ പൈലറ്റ് ഉപമുഖ്യമന്ത്രിയുമാകും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് റായ്പൂരിൽ ചേരും

പിസിസി അധ്യക്ഷൻ ഭൂപേഷ് ഭാഗൽ പ്രതിപക്ഷ നേതാവ് ടി

മഹന്ത് എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്

രണ്ടു ജവാന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റു ദക്ഷിണ കശ്മീരിലെ പുൽവാമ ജില്ലയിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം തീവ്രവാദികൾ നുഴഞ്ഞു കയറിയെന്ന വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീർ പൊലീസ് രാഷ്ട്രീയ റൈഫിൾസ് സി

എഫ് എന്നിവർ നടത്തിയ സംയുക്ത ഓപ്പറേഷരിലാണ് ഇവർ കൊല്ലപ്പെട്ടത് തുടർ സംഘർഷം ഭയന്ന് പ്രദ്ദേശ്രത്തെ മൊബൈൽ വിനിമയ സംവിധാനങ്ങൾ അധികൃതർ വിഛേദിച്ചു

ന്യൂഡെൽഹിയിൽ

ഐ

ഐയുടെ വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യമാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ സാമ്പത്തിക വർഷം ധനകമ്മി ദ

രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട നിരവധി മേഖലകളുണ്ടെന്നും വായ്പ ലഭ്യത മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മൊത്തആഭ്യന്തര ഉത്പ്പാദനത്തിൽ ഉടൻതന്നെ ഇന്ത്യ ബ്രിട്ടനെ മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റിസർവ് ബാങ്കിന്റെ സ്വയം ഭരണവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ഗവൺമെന്റ് ബഹുമാനിക്കുന്നുണ്ടെന്ന് ശ്രീ

നർമ്മദാ ജില്ലയിലെ കേവാദ്യയിലുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്റ്റാച്ച്യൂ ഓഫ് യൂണിറ്റി രാഷ്ട്രപതി സന്ദർശിച്ചു പട്ടേലിന് ആദരാഞ്ജലി അർപ്പിച്ച് തുടർന്ന നടന്ന പ്രാർത്ഥനായോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു ഗുജറാത്ത് ഗവർണർ ഓംപ്രകാശ് കോഹ്ലി മുഖ്യമന്ത്രി വിജയ് രൂപാനി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ തുടങ്ങിയവർ രാഷ്ട്രപതിയെ അനുഗമിച്ചു

സർദാർ പട്ടേലിന്റെ ജീവിതവും സംഭാവനകളും ഇന്ത്യയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സഹായകരമാണെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോളമേഖലാ വിഷയങ്ങളും ഇരുനേതാക്കളും ചർച്ചചെയും ഇന്ത്യയുമായി വിവരസാങ്കേതിക മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും സൂപ്പർകമ്പ്യൂട്ടറുകൾക്കായി ഇന്ത്യയിൽ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള കരാറുകൾ ഒപ്പുവെയ്ക്കുന്ന ചടങ്ങിലും ഫ്രാൻസ് വിദേശകാര്യമന്ത്രി പങ്കെടുക്കും

ശ്രീലങ്കൻ ഭരണത്തിന് ്സ്ഥിരത നൽകുന്നതിന്റെ ഭാഗമായാണ് രാജിയെന്ന് അദ്ദേഹത്തിന്റെ മകൻ നമൽ രാജപക്സെ പറഞ്ഞു മുൻപ്രധാനമന്ത്രി റെനിൽ വിക്രംസിൻഗെയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരം ഏറ്റെടുക്കും

കിട്ടാക്കടങ്ങളും നിഷ്ക്രിയ ആസ്തികളും എഴുതിത്തള്ളുക എന്നത് ബാങ്കുകൾ അനുവർത്തിച്ചു വരുന്നതാണ് ബാലൻസ് ഷീറ്റിൽ കിട്ടാക്കടം നികുതി മൂലധനം എന്നിവ ക്രമപ്പെടുത്താനായാണ് ബാങ്കുകൾ ഈ രീതി അവലംബിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

നുവാകോട്ട് ജില്ലയിലെ ഗ്യാൻപേഡി മേഖലയിലുള്ള ദുപ്ചേശ്വർ മുനിസിപ്പാലിറ്റിക്കു സമീപം ഇന്നലെ വൈകുന്നേരമാണ് അപകടം നടന്നത്

തിങ്കളാഴ്ച ആന്ധ്രയുടെ തെക്കുകിഴക്കൻ തീരത്ത് ഫെതായ് എന്നു പേരിട്ടിരിക്കുന്ന ചുഴലിക്കാറ്റ് വീശിയടിക്കുമെന്നാണ് റിപ്പോർട്ട്

തോമസ് തെന്നാട്ട് വാഹനാപകടത്തിൽ അന്തരിച്ചു

അപകടം നടന്ന ഉടൻതന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയശേഷം ബിഷപ്പിനെ അടുത്തുള്ള ആശുപത്രിയിൽ ് പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല

മുരളി വിജയ് കെ

തായ്ലന്റ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധു ഫൈനലിലെത്തിയത് നാളെ നടക്കുന്ന കലാശപ്പോർാട്ടത്തിൽ ജപ്പാന്റെ ഒക്കുഹാരയാണ് പി

സിന്ധുവിന്റെ എതിരാളി